ടി ഇലക്ട്രോണിക് നിർമ്മാണ മേഖലയിലെ ഉന്നത സാങ്കേതിക വിദഗ്ധരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആശയവിനിമയും നടത്തും

പ്രകമസമാധാന സാഹചര്യം വിലയിരുത്താൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു

ചടങ്ങിൽ മേം നഹീം ഹം എന്ന വെബ്പോർട്ടലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഐ ടി വിദഗ്ധരെ പരസ്പരം ബന്ധപ്പെടുത്താനാണ് പോർട്ടൽ സജ്ജീകരിച്ചത് സമൂഹത്തിലെ ദുർബലവിഭാഗങ്ങൾക്ക് ഐ ടി സേവനം കൂടുതൽ ലഭൃമാക്കാനും പോർട്ടൽ വഴിയൊരുക്കും

അന്താരാഷ്ട്ര സഹകരണം മെച്ചപ്പെടുത്തുക ആഗോള സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക ഇന്ത്യയിലെ ജനങ്ങളുടെ വികസനത്തിനായി നല്കിയ സംഭാവനകൾ എന്നിവ പരിഗണിച്ചാണ് പുരസ്കാരം ഇന്ത്യയുടെയും ആഗോള സമ്പദ്ഘടനയുടെയും വളർച്ചയ്ക്കായി നടത്തിയ പ്രവർത്തനങ്ങളും മോഡിനോമിക്സിലൂടെ പാവപ്പെട്ടവരും തമ്മിലുള്ള സാമ്പത്തിക പണക്കാരും അന്തരം കുറയ്ക്കുന്നതിനായി എടുത്ത നടപടികളും സമിതി പരിഗണിച്ചു

ദക്ഷിണ ക്ട്രിറിയിയുമായി വർദ്ധിച്ചുവരുന്ന ഇന്ത്യയുടെ സഹകരണത്തിന്റെ വെളിച്ചത്തിൽ അഭിമാനപൂർവ്വം ആദരത്തിന് നന്ദി അറിയിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു

പി റാവത്തിന്റെ കമ്മീഷണർ നേതൃത്വത്തിലുള്ള സ്ട്രലം തെലങ്കാനയിലെ ഓരോ ജില്ലയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി

സ്വതന്ത്രവും നീതിപൂർവ്വകവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പു കമ്മീഷണർ നിർദ്ദേശം നൽകി നിലവിലെ തയ്യാറെടുപ്പുകളിൽ അദ്ദേഹം സംതൃപ്തി പ്രകടിപ്പിച്ചു

പ്രദേശത്ത് തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ടെന്ന് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിനിടെ തീവ്രവാദികൾ വെടിയുതിർത്തതിനെ തുടർന്നാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് തിരച്ചിൽ അവസാനിപ്പിച്ചതായും കൊല്ലപ്പെട്ട തീവ്രവാദികളെ തിരിച്ചറിഞ്ഞതായും സംസ്ഥാന പോലീസ് മേധാവി ദിൽബാഗ് സിംഗ് ആകാശവാണിയോട് പറഞ്ഞു

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും തന്ത്രപരവുമായ സൌഹൃദം ശക്തമാക്കാനുള്ള മാർഗങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു ഉഭയകക്ഷിബന്ധം ഇരുജനതയ്ക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ വികസിപ്പിക്കാൻ സന്നദ്ധമാണെന്ന് ഇരു നേതാക്കളും ടെലിഫോൺ വഴിയുള്ള ചർച്ചയിൽ പറഞ്ഞു

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ എല്ലാ ജനങ്ങൾക്കും വാൽമീകി ജയന്തി ആഘോഷങ്ങൾ നേർന്നു സാമൂഹിക ഐക്യം സാഹോദര്യം എന്നിവയുടെ എല്ലാം പ്രതീകമാണ് ആദികവി മഹാഋഷി വാൽമികിയെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു നിരവധി പേർക്ക് പ്രചോദനം നൽകുന്നതാണ് വാൽമീകി രചിച്ച രാമായണമെന്നും രാഷട്രപതി പറഞ്ഞു സമാധാനം സമത്വം സാമൂഹ്യനീതി എന്നിവയിലൂന്നിയ ഭഗവാൻ വാൽമീകിയുടെ തത്വങ്ങൾ ഇന്നും ജനങ്ങൾ സ്മരിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ പറഞ്ഞു

കാഴ്ച പരിമിതിയുള്ളവർക്കായി തയ്യാറാക്കുന്ന ബ്രെയ്ൻ ലിപിയിലെ വോട്ടർ സ്തിപ്പുകൾ വിതരണം ചെയ്യാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി വീൽ ചെയറിൽ എത്തുന്ന സമ്മതിദായകർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇതിനുപുറമെ പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചേരാനുള്ള വാഹന സൌകര്യവും ഇവർക്കായി ഒരുക്കണം വോട്ടെടുപ്പ് ദിനത്തിൽ പൊതുഗതാഗത സൌകര്യത്തിൽ സൌജന്യ പാസ് അനുവദിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

രാജസ്ഥാനിലും തെലങ്കാനയിലും ഡിസംബർ ഏഴിന് തെരഞ്ഞെടുപ്പ് നടക്കും

ബി ഡി

നികുതിദായകരുടെ എണ്ണം ഇപ്പോഴത്തെ നിലയിൽ വർദ്ധിക്കുകയാണെങ്കിൽ നികുതിനിരക്ക് വീണ്ടും കുറയ്ക്കാനാകുമെന്നും ആകാശവാണിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു

നികുതിവെട്ടിപ്പുകാരെ വെറുതെ വിടില്ല

ശങ്കരദാസ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു

സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ദേവസിട്ടു ബോർഡിനുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു

ഡിജിപി ലോക്നാഥ് ബെഹ്റ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഓഫീസിലെത്തി സന്ദർശിച്ച് ചർച്ച നടത്തി മണ്ഡലമകരവിളക്ക് സീസൺ അടുത്ത സാഹചര്യത്തിൽ ശബരിമലയിൽ നടപ്പാക്കേണ്ട സുരക്ഷാമുൻ കരുതലുകളെക്കുറിച്ചാണ് പോലീസ് ആസ്ഥാനത്ത് ചേരുന്ന യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്

ജലം ഉൌർജ്ജം സാങ്കേതികവിദ്യ പരിസ്ഥിതി എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രദർശനമാണ് വെറ്റെക്സ് അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയ ഇന്ത്യൻ പവലിയൻ സാമ്പത്തികകാര്യ കോൺസൽ രാഹുൽ ശ്രീവാസ്തവ ഉദ്ഘാടനം ചെയ്തു

പരമ്പരയിലെ മറ്റ് മൂന്ന് മത്സരങ്ങൾ പുനെ മുംബൈ തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് നടക്കുന്നത്

വനിതാ സിംഗിൾസിൽ സൈന നെഹ്വാൾ ജപ്പാന്റെ സയന കവാകമിയെ നേരിടും